കേരളം ഉൾപ്പെടെയുള്ള സംസ്യ്മാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിച്ചതായി ് എൻ

ഈ വർഷത്തെ ബുക്കർ പുരസ്ക്കാരം മാർഗരറ്റ് അറ്റ്വുഡിനും ന് ബർണാഡിനേ ഇവാരിസ്റ്റോയ്ക്കും

പ്രിയാൻഷു രാജ്വത്തിന്

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അവർ കേരളത്തിലും എത്തുന്നുണ്ട്

ന്യൂഡൽഹിയിലെത്തിയ ഡച്ച് രാജാവിനും പത്നിക്കും ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വില്യം അലക്സാണ്ടർ ചർച്ച നടത്തി

ഇന്ത്യൻ കമ്പനികൾ നെതർലന്റിൽ നിക്ഷേപം നടത്തുന്നുണ്ട്

ഐക്യരാഷ്ട്ര സുരക്ഷാ ക്ഷ്യൺസിൽ അംഗത്വത്തിനായി ഇന്ത്യയെ പിന്തുണച്ചതിൽ രാഷ്ട്രപതി നെത്തർല്ലന്റ് രാജാവിനോട് നന്ദി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലിയോണുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആറ് കരാറുകളിൽ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ഒപ്പിടാനായി സന്ദർശനത്തിനിടെ സിയാറലിയോണിലെ ഇന്ത്യൻ സമൂഹത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തു പുനഃസംഘടന ജമ്മു കശ്മീരികളുടെ വികസനത്തിന് സഹായകരമാകുമെന്ന് ശ്രീ

അതിർത്തി കടന്നുള്ള തീവ്രവാദം കുറയ്ക്കുന്നതിനും കശ്മീർ പുനഃസംഘടന ഗുണകരമാകും തീവ്രവാദികളെ സഹായിക്കുന്ന പാകിസ്ഥാനെ പേരെടുത്തു പറയാതെ ഉപരാഷ്ട്രപതി വിമർശിച്ചു

ബി പ്രവർത്തനം വ്യാപിപ്പിച്ചതായി ദേശീയ അന്വേഷണ ഏജൻസി എൻ

എ മേധാവി വൈ

കേരളത്തിന് പുറമെ ത്സാർഖണ്ഡ് മഹാരാഷ്ട്ര ബിഹാർ കർണ്ണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ജമാ അത്തുൽ മുജാഹിദ്ദിൻ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഭീകരവിരുദ്ധ സ്കാഡുകൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ എൻ

കൃഷ്ണഗിരിയിൽ ഈ ഭീകരസംഘടന വിവിധ തരത്തിലുള്ള ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തി രാത്രിയിൽ മലനിരകളിൽ റോക്കറ്റ് ലോഞ്ചറിന്റെ പരീക്ഷണം നടത്തിയതായും എൻ ഐ എ അറിയിച്ചു

വ്യക്തുമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രോലീസ് വക്താവ് അറിയിച്ചു ഇരുവരും ഹിസ്ബുൾ മുജാഹിദ്ദിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചു് വരികയാണ്

കനേഡിയൻ സാഹിത്യകാരനായ ആറ്റ്വുഡിന്റെ ദി ടെസ്റ്റാമെന്റിന്നും ബ്രിട്ടീഷ് സാഹിത്യകാരിയായ ഇവാരിസ്റ്റോയുടെ ഗേൾ വിമൻ ആന്റ് അദേഴ്സിനുമാണ് പുരസ്കാരം ലഭിച്ചത് പുരസ്കാര നിർണ്ണയത്തിന്റെ അവസാന വട്ടം വരെയും മികച്ചു നിന്ന കൃതികൾ ഒരുപോലെ മഹത്തരമെന്ന് ജൂറി വിലയിരുത്തി

ബുക്കർ പുരസ്ക്കാരം നേടുന്ന ആദ്യകറുത്ത വർഗ്ഗക്കാരിയാണ് ഇവാരിസ്റ്റോ

വൃവസായ പ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി ഗുരുപ്രസാദ് മഹാപത്രയാണ് ന്യൂഡൽഹിയിൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം നിർവ്വഹിച്ചത്

ആർ പ്രൊമോഷൻ മാനേജ്മെന്റും ദേശീയ നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് ആപ്സിക്കേഷൻ രൂപകൽപ്പന ചെയ്തത്

സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്

സൈബർ വിഷയങ്ങളിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ഇന്ത്യ ആസിയാൻ ട്രാക്ക് ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി താക്കൂർ രാഷ്ട്രീയവും സൈബർ ഇടവും തമ്മിലുളള അതിർത്തി സൈബർ നിയമങ്ങളിൽ സുപ്രധാനമാണെന്നും അവർ പറഞ്ഞു

കുർദ് സേനയ്ക്കെതിരായ തുർക്കിയുടെ ആക്രമണം പ്രതിരോധിക്കുമെന്ന് സിറിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

കുർദ്ദ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് തുർക്കി കര വ്യോമ ആക്രമണങ്ങൾ കടുപ്പിച്ചത് ഇതോടെ കുർദുകൾ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സഹായം തേടി അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാമെന്നു സിറിയൻ പ്രസിഡന്റ് അറിയിച്ചതാണ് സ്ഥിതി വഷളാക്കുന്നത്

തുർക്കിയുടെ ആക്രമണത്തെ തുടർന്ന് ഐ എസ് ഭീകരരുടെ കുടുംബാംഗങ്ങളെ താമസിപ്പിച്ചിരുന്ന ക്യാമ്പിൽ നിന്ന് എണ്ണൂറോളം പേർ രക്ഷപ്പെട്ടു കുർദ് സായുധ സേനയായ വൈപിജിയിലെ അഞ്ഞൂറോളം പേരെ വധിച്ചതായി തുർക്കി അവകാശപ്പെട്ടു

തുർക്കിയുടെ ആക്രമണത്തിന് എതിരെ അറബ് ലീഗ് അടക്ക്ട്മുള്ള് രാജ്യങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്

ആർക്കും നുഴഞ്ഞുകയറാൻ കഴിയാത്ത തരത്തിൽ ഗവൺമെന്റ് അതിന് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

എല്ലാ ടോൾ ബൂത്തിലും ഫാസ്ടാഗ് സംവിധാനം സജ്ജമാക്കുന്നതോടെയാണിത്

ഇത് സംബന്ധിച്ച കരാറിൽ യു

നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്

ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും ഉത്തരവിട്ടിട്ടുണ്ട് മഹാരാഗഞ്ചിലെ ഗോസംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ പ്ര ഏകോപിപ്പിക്കുന്നതിലുണ്ടായ് വീഴ്ചയാണ് നിടപ്പടിയ്ക്ക് കാരണം

അർഹത നോക്കിയാവും ഓർശോ ഉടമകൾക്കും നഷ്ടപരിഹാരം ലഭിക്കുകയെന്നും സമിതി പറ്ഞ്ഞു

പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രധാന പ്രതി ജോളിയെ വീണ്ടും പൊന്നാമറ്റം തറവാട് വീട്ടിലെത്തിച്ചു തെളിവെടുപ്പ് നടത്തി

ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനായി കൂടത്തായിയിൽ എത്തിയ സാങ്കേതിക സംഘവും ഇന്നലെ പൊന്നാമറ്റം വീട് സന്ദർശിച്ചു പരിശോധനകൾക്ക് പിന്നാലെ ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ഐ സി

ഇന്നലെ വടകരയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് സംഘം എത്തിയത് പരിശോധനകൾ ഇന്ന് തുടരും മറ്റ് സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും

ഇത് സംബന്ധിച്ച് വനം റവന്യൂ വകുപ്പുകൾ ഉന്നതതല ചർച്ചകൾ നടത്തി അനുകൂല തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഇടുക്കി ജില്ലാ വനം അദാലത്ത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ജൂഹി ദിവാൻഗ്ഗുറ്റുട് വെങ്കട്ഗൌരവ് പ്രസാദും ഒന്നാം സ്ഥാനത്തെത്തി